ആദ്യമായി ഓൺലൈൻ വഴി ചേരുന്ന യോഗം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും

ശിവശങ്കറിനെ എൻ

എ സംഘം ഇന്ന് കൊച്ചിയിൽ ചോദ്യം ചെയ്യും

നോയിഡയിലെ ഐ

ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൻസർ പ്രിവൻഷൻആന്റ് റിസർച്ച് മുംബൈയിലെ ഐ

ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ റീപ്രൊഡക്ടീവ് ഹെൽത്ത് കൊൽക്കത്തയിലെ ഐ

ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോളറ ആന്റ് എന്റെറിക് ഡിസീസ് എന്നിവിടങ്ങളിലായി മൂന്ന് ഹൈത്രൂപുട്ട് പരിശോധനാ സംവിധാനങ്ങളാണ് രാജ്യത്ത് നിലവിൽ വരുന്നത് ഇവിടങ്ങളിൽ പ്രതിദിനം പതിനായിരം സാമ്പിളുകൾ പരിശോധിക്കാൻ കഴിയും പരിശോധനാ ഫലം ലഭിക്കുന്നതിന് കുറഞ്ഞ സമയം മതിയാകും ഈ ലാബുകളിൽ കോവിഡ് ഇതര അസുഖങ്ങൾക്കും പരിശോധന നടത്താനാകും

തിരുവനന്തപുരത്ത് കൊവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ രാവിലെ പത്തിന് ഓൺലൈൻ വഴിയാണ് യോഗം ചേരുക

നിയമസഭാ സമ്മേളനം ചേരാൻ സാധിക്കാത്തതിനാൽ ധനബിൽ ഓർഡിനൻസിനും യോഗം അംഗീകാരം നൽകും രും സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നു സമ്പർക്കം വഴിയും രോഗബാധ വർധിക്കുകയാണ്

തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഇന്നലെയും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്

കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ മൂന്ന് മരണം വീതവും ത്യശൂർ മലപ്പുറം കാസർകോട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓരോ മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്

മെഡിക്കൽ കോളജിൽ ചികിത്സയിലായിരുന്ന ഓമശേരി സ്വദേശി മുഹമ്മദ് എറണാകുളത്ത് അർബുദ ചികിത്സയിലായിരുന്ന കുറ്റ്യാടി സ്വദേശി ബഷീർ വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്വദേശി ഷാഹിദ എന്നിവരുടെ മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്

മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലായിരുന്ന ഒരാൾകൂടി മരിച്ചു

ഇദ്ദേഹത്തിന്റെ രോഗ ഉറവിടം കണ്ടെത്തിയിട്ടില്ല ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എട്ടായി രുദ മരണശേഷം കോവിഡ് സ്ഥിരീകരിച്ച കോട്ടയം ചുങ്കം സ്വദേശി ഔസേപ് ജോർജിന്റെ മൃതദേഹം പാതിരാത്രിക്കു ശേഷം മുട്ടമ്പലം നഗരസഭാ ശ്മശാനത്തിൽ അടക്കി മൃതദേഹം മുട്ടമ്പലം ശ്മശാനത്തിൽ അടക്കുന്നതിനെതിരേ നാട്ടുകാർ ഇന്നലെ വൈകീട്ടു മുതൽ പ്രതിഷേധിച്ചിരുന്നു ഒത്തുതീർപ്പു ചർച്ചകളും പരാജയപ്പെട്ടു പാതിരാത്രിയോടെ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയി തുടർന്ന് അധികൃതർ സംസ്കാരം നടത്തുകയായിരുന്നു രുര കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം നിലവിൽവരും രജിസ്ട്രേഷൻ നമ്പർ ഒറ്റ അക്കങ്ങളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും ഇരട്ട അക്കങ്ങളിൽ അവസാനിക്കുന്നവ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും മാത്രം സഞ്ചരിക്കാം ജില്ലയിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് ബാധകമാണ് ദേശ കോവിഡിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തിരൂർ മാർക്കറ്റ് ഇന്ന് മുതൽ കടുത്ത നിയന്ത്രണങ്ങളോടെ തുറന്നുപ്രവർത്തിക്കും മത്സ്യ മാർക്കറ്റ് ഒഴികെ സ്ഥാപനങ്ങൾക്കാണ് അനുമതി നൽകിയത് രുമ തലശ്ശേരിയിൽ കൺട്രോൾ റൂം എസ്

ഹൈവെ പട്രോൾ ടീമിൽ പ്രവർത്തിക്കുന്ന മുഴപ്പിലങ്ങാട് സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ രോഗ ഉറവിടം കണ്ടെത്തിയിട്ടില്ല തലശ്ശേരി ഡി

പി ഓഫീസും കൺട്രോൾ റൂമും അടച്ചിടും ദേദ തിരുവനന്തപുരത്ത് ഇടവ മുതൽ പെരുമാതുറ വരെ ഒന്നാം സോണിൽ കോവിഡ് തീരദേശ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മൊബൈൽ പരിശോധനാ യൂണിറ്റുകൾ സജ്ജമാക്കും നിലവിലെ പത്ത് ആംബുലൻസുകളിൽ മൂന്നെണ്ണം മൊബൈൽ യൂണിറ്റിനായി ഉപയോഗിക്കും രുമ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഒമ്പത് കോവിഡ് പ്രഥമതല ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കും ആയിരം പേരെ കിടത്തി ചികിത്സിക്കാൻ സൌകര്യങ്ങളാണ് ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നത് ദരദ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കാട്ടാക്കട പൊന്നറ വാർഡുകളെ കണ്ടെയിൻമെന്റ് സോണായി തിരുവനന്തപുരം ജില്ലാ കലക്ടർ ഡോ

പള്ളിച്ചൽ ഗ്രാമ പഞ്ചായത്തിലെ കണ്ണകോട് കുളങ്ങരക്കോണം ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ മരിയപുരം കൊച്ചോട്ടുകോണം വെമ്പായം ഗ്രാമ പഞ്ചായത്തിലെ കുറ്റിയാണി കരവാരം ഗ്രാമ പഞ്ചായത്തിലെ മുടിയോട്ടുകോണം എന്നീ വാർഡുകളെയും കണ്ടെയിൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി ദേദ കോഴിക്കോട് കോർപ്പറേഷനിലെ സിവിൽസ്റ്റേഷൻ വെള്ളയിൽ ബേപ്പൂർ പോർട്ട് വാർഡുകളും കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പൊയിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ കപ്പലങ്ങാടി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ടൌൺ വാർഡും മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ പൈക്കാട്ടുമ്മലും ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ കേളുബസാറും കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലെ കാരന്തൂർ നോർത്തും കണ്ടെയ്മെന്റ്സോണായി പ്രഖ്യാപിച്ചു കായക്കൊടി ഗ്രാമപഞ്ചായത്തിൽ വാർഡ് മൂന്നിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവരും റൂം ക്വാറന്റൈനിൽ പ്രവേശിക്കാനും നിർദേശം നൽകി രുദ മാള ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയിൻമെന്റ് സോണായി തൃശൂർ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു

രുര സ്വർണക്കടത്തുകേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻ ഐ എ സംഘം ഇന്ന് വീണ്ടും ചോദ്യംചെയ്യും ഇതിനായി എൻ ഐ എ യുടെ പ്രത്യേകസംഘം കൊച്ചിയിലെത്തി കൊച്ചി ഓഫീസിൽ രാവിലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്

ഐ എ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരോടൊപ്പം ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരും അടങ്ങിയ പ്രത്യേക സംഘമാകും ശിവശങ്കറിനെ ചോദ്യംചെയ്യുക സ്വർണക്കടത്ത് കേസിൽ എൻ ഐ

നേരത്തെ കസ്റ്റംസും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു രുര ഉപയോഗശൂന്യമായ തോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ത്രിമാനരൂപം സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇന്നു രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് അനാച്ഛാദനം ചെയ്യും ഉപയോഗ്യശൂന്യമായതും കാലഹരണപ്പെട്ടതുമായ റൈഫിളുകൾ റിവോൾവറുകൾ തിരകൾ എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്

ഡിവിഷന് കീഴിലെ തിരൂരങ്ങാടി തിരൂർ പെരിന്തൽമണ്ണ പൊന്നാനി പട്ടാമ്പി ചാവക്കാട് താലൂക്കുകളിലെയും കൊടുങ്ങല്ലൂരിലെയും പൊതു സ്വകാര്യ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനാണ് ഗവൺമെന്റ് തുക അനുവദിച്ചത്

കരടിയെ പിടിക്കാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു രുമ അടുത്തമാസം ഒന്നിന് ആരംഭിക്കുന്ന വന്ദേഭാരത് മിഷൻ അഞ്ചാംഘട്ടത്തിൽ യു

ഇയിൽ നിന്ന് നൂറിലധികം വിമാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രവാസികളെ കൊണ്ടുവരും